ബാങ്കിന്റെ മേൽനോട്ടത്തിൽ കൊണ്ടുവരാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം

മാർഗ്ഗനിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ച് സംസ്ഥാന സർക്കാർ

അടുത്തു മെക്സിക്കോയിലും റഷ്യയിലും രോഗികൾ വർദ്ധിക്കുന്നു

മുദ്ര ശിശുലോൺ വിഭാഗ്ഗത്തിൽ ഉൾപ്പെടുന്നവർക്കാണ് ഇളവ് ലഭ്യമാക്കുക

ഉത്തർപ്രദേശിലെ കുശിനഗറിൽ അന്താരാഷ്ട്ര വിമാനത്താവളം വികസിപ്പിക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു

ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന രോഗബാധാ നിരക്കാണിത്

സി എം ആർ

ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന പരിശോധനാ നിരക്കാണിത്

കൂടുതൽ വിവരങ്ങളുമായി ജയലക്ഷ്മി

ന്യൂസ്ഡെസ്ക് ആകാശവാണി

സി എം

കോവിഡ് രോഗികൾക്ക് ട്രമെച്ചപ്പെട്ട ചികിത്സ ഒരുക്കുന്നതിനുളള സൂപ്രധാന ചുവടുവയ്പ്പാണ് ഇതെന്ന് ഐ സി എം ആർ ടിറ്ററിൽ കുറിച്ചു

കോവിഡ് അവലോകന യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം

വിദേശത്ത് പരിശോധനയ്ക്ക് വിധേയമാകാത്തവർ കേരളത്തിലെത്തിിയിൽ വിമാനത്താവളത്തിൽ റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റിന്റ് പ്ലിദ്ധേയരാകണം കോവിഡ് പ്പോസിറ്റീവ് ആകുന്നവർ ആർട്ടി പി സി ആർ ട്രൂ നാറ്റ് ജീൻ എക്സ്പ്രസ് ഇവയിലേതെങ്കിലും ചൂരിശോധനയ്ക്ക് വിധേയമാകണം

ഇ കിറ്റ് കൂടി ധരിക്കണമെന്നും ശ്രീ പിണറായി വിജയൻ നിർദ്ദേശിച്ചു

റഷ്യൻ ഉപപ്രധാനമന്ത്രി യൂറി ബോറിസോവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോസ്കോയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇന്ത്യ റഷ്യ പ്രതിരോധ സഹുക്രൂണം മെച്ചപ്പെടുത്താനുളള പദ്ധതികളും കൂടിക്കാഴ്ചയിൽ സന്ദർശനത്തിനായി റഷ്യയിൽ എത്തിയ ശ്രീ രാജ്നാഥ് സിംഗ് മോസ്കോയിലെ റെഡ് സ്ക്വെയ്റ്റിൽ നടന്ന വിജയ പരേഡിലും പങ്കെടുത്തു

് കോവിഡ് മഹാമാരിക്കിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രതിനിധി വിദേശ സന്ദർശനം നടത്തുന്നത് കോവിഡ് കാലത്തെ പ്രതിബന്ധങ്ങൾക്ക് ഇടയിലും ഡൽഹിയും മോസ്കോയുമായുളള ഉഭയകക്ഷിബന്ധം തുടരുകയാണെന്ന് അദ്ദേഹം വൃക്തമാക്കി ന്യൂസ്ഡെസ്ക് ആകാശവാണി

മെക്സിക്കോ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്

ചൈനയുമായുളള അതിർത്തി സംഘർഷത്തിന് ശേഷം ഇത് രണ്ടാം തവണയാണ് കരസേനാ മേധാവി മേഖലയിൽ സന്ദർശനം നടത്തുന്നത്